ജമ്മുവിലെ ബനിഹാൾ പ്രദേശത്ത് ഒഴികെ മറ്റിടങ്ങളിൽ സ്കൂളുകൾ എല്ലാം തുറന്നു പ്രവർത്തിച്ചു

റസി കത്വ ജില്ലകളിലും സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണ് അതേസമയം ജമ്മു മേഖലയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് മൊബൈൽ ഇന്റർനെറ്റ് ്സേവനങ്ങൾ തടസ്സപ്പെട്ടു

നിക്ഷിപ്ത താല്പര്യക്കാർ പ്രചരിപ്പിക്കുന്ന ക്ടിംവിദന്തികൾക്ക് വഴിപ്പെടരുതെന്ന് ജമ്മു ഡിവിഷണൽ കമ്മീഷണർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

നിയന്ത്രണങ്ങ്ളിൽ അയവ് വരുത്തിയതിനെതുടർന്നാണിത്

മുംബൈയിൽ ദേശീയ ബാങ്കിംഗ് സമ്മേളനത്തിനിടെ നടത്തിയ വാർത്ത സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്

മൊത്തം സംവിധാനവും ഈ രീതിയിലേക്ക് മാറേ തിന്റെ ആവശ്യകത റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ഇന്ന് ഉത്നിപ്പറഞ്ഞിരുന്നു

സംഘടിപ്പിച്ച വാർഷിക ബാങ്കിംഗ് യോഗത്തിൽ സംസാരിക്കവേയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വായ്പകളും നിക്ഷേപങ്ങളും റിപ്പോ നിരക്കുമായി എസ് ബി ഐ യാണ് ആദ്യം ബന്ധിപ്പിച്ചത്

ബാങ്ക് ഓഫ് ബറോഡ യൂണിയൻ ബാങ്ക് കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളും പിന്നീട് ഈ രീതി സ്വീകരിച്ചു

അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മൊഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാനുമായി അദ്ദേഹം ചർച്ച നടത്തും ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ചും മേഖലാതല അന്താരാഷ്ട്രതല കാര്യങ്ങളും ചർച്ച ചെയ്യും

ഇന്ത്യയും യുക്എ് ഇയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് നേതൃത്വം നൃൽകിയ്തിനാണ് ശ്രീ മോദിക്ക് പുരസ്ക്കാരം സമ്മാനിക്കുന്നത്

നേരത്തെ ലിത്വാനിയൻ പ്രധാനമന്ത്രി സൌലിസ് സ്കർനലിസ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവുമായി ചർച്ച നടത്തുകയു നായി ലിത്വാനിയൻ സ്വാതന്ത്ര്യസമരത്തിൽ ജീവത്യാഗം ചെയ്തവർക്ക് ഉപരാഷ്ട്രപതി സ്മാരണജ്ഞലി അർപ്പിക്കുന്ന ചടങ്ങും ഉ ായിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ ്

മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ലിത്വാനിയ ശക്തമായി പിന്തുണയ്ക്കുന്നു ന്നും അദ്ദേഹം പറഞ്ഞു സൌരോർജ്ജ ബാറ്ററി നിർമ്മാണത്തിലെ ലിത്വാനിയയുടെ വൈദഗ്ധ്യം ശ്രീ വെങ്കയ്യനായിഡു ചൂ ിക്കാട്ടി ലിത്വാനിയൻ സാങ്കേതിക വിദ്യ ഇന്ത്യയ്ക്കും ഗുണകരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതിരോധം ബഹിരാകാശം വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന തരം ലേസർ രശ്മികൾ ഉല്പാദിപ്പിക്കുന്നതിൽ ലിത്വാനിയൻ വൈദഗ്ധ്യം ഇന്ത്യയ്ക്കും ഉപകാരപ്പെടും ഇന്ത്യ യൂറോപ്പ് ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കാനും ലിത്വാനിയൻ വൃവസായ സമൂഹപ്രതിനിധികളെ ഉപരാഷ്ട്രപതി ക്ഷണിച്ചു ഇന്ത്യയും ലിത്വാനിയയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇപ്പോൾ കുറഞ്ഞ തോതിലാണെന്നും ശ്രീ വെങ്കയ്യനായിഡു ചൂ ിക്കാട്ടി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യ ഉല്പാദന നിക്ഷേപ കേന്ദ്രമായി മാറി ലിത്വാനിയയിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംസ്കാരിക സാമ്പത്തിക ബന്ധം പോഷിപ്പിക്കാനുള്ള പാലമായി പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ന് വൈകൂന്നേരം മൂന്നരയോടു കൂടി ഏലപ്പാറയിൽ നിന്നുമാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം കടെ ത്തിയത്

ഉരുൾപൊട്ടൽ ദുരന്തം ഉ ായ മലപ്പുറം കവളപ്പാറയിൽ ഇന്ന് മൃതദേഹങ്ങൾ ക െ ത്താനായില്ല തെരച്ചിൽ തുടരുന്നു

ബി ഐ

കൂടുതൽവിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

എന്നാൽ ഇത് ആസൂത്രിതമാണെന്നാണ് ആരോപണം

ജെ

മുൻ എം

കുൽദീപ് സെൻഗിന്റെയും അനുയായികളുടെയും ഗൂഡാലോചനയാണ് അപകടത്തിന് പിന്നിലെന്നാണ് ആരോപണം അപകടത്തിൽ പെൺകുട്ടിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു

മാനഭംഗകേസിലെ സാക്ഷികളായ പെൺകുട്ടിയുടെ ര ് ബന്ധുക്കൾ അപകുടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ജസ്റ്റിസുമാരായ ദീപക്ഗുപ്ത അനിരുദ്ധ ബോസ് എന്നിവരാണ് ഇന്ന്കേസ് പരിഗണിച്ചത്

ബി ഐ

ബി ഐ

പെൺകുട്ടിയുടെ അഭിഭാഷകന് അഞ്ച്ലക്ഷം രൂപ സഹായധനം നൽകാനും കോടതി ഉത്തർപ്രദേശ് ഗവൺമെന്റിന് നിർദേശം നൽകി

എ ഗവൺമെന്റിന്റെ കാലത്ത് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടു നടന്ന വൻ അഴിമതികേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ശ്രീ

ചിദംബരത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്

ന്യൂഡൽഹിയുടെ സുസ്ഥിര ശുചീകരണം എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

അഞ്ചാമത് ഇന്ത്യ നേപ്പാൾ സംയുക്ത കമ്മീഷൻ യോഗത്തിന് മുന്നോടിയായി കാഠ്മണ്ഡുവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം